ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി

തിത്ലി ചുഴലിക്കാറ്റ് ആന്ധ്ര ഒഡീഷാ തീരങ്ങളിലേക്ക് അടുക്കുന്നു

തുഷാർമേത്തയെ സോളിസിറ്റർ ജനറലായി നിയമിച്ചു

ജെ

ആഗ്ര ദമോ കരൌളി ധോൽപൂർ മൈസുരു റായ്പൂർ ലോക്സഭ മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തകരുമായി നമോ ആപ്പിലൂടെ വൈകുന്നേരം സംവദിക്കുകയായിരുന്നു ശ്രീ

എല്ലാവിധ എതിർപ്പുകൾക്കിടയിലും ബി ജെ

മുൻ ഗവൺമെന്റുകളുടെ പദ്ധതികൾ പൂർത്തീകരിക്കുക മാത്രമാണ് ബിൾജ്

ചെയ്യുന്നതെന്ന വിമർശനത്തെ ശ്രീ മോദി തള്ളീക്കള്ഞു

ഇടപാട് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന് നോട്ടീസ് അയക്കണമെന്ന ആവശ്യവും കോടതി അനുവദിച്ചില്ല എന്നാൽ കരാർ സംബന്ധിച്ച നടപടികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി്

എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിയ്ക്കെ ഉ ായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അന്റോർണി ജനറൽ കെ

ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള രാജ്യാന്തരയിടപാടായതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വ്യോമസേനയുടെ സുരക്ഷയെ ബാധിക്കുമെന്നും കെ

വളരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു

കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളെ ് ഇവിടെ വിന്യസിച്ചിട്ടു തീരപ്രദേശത്ത് ജില്ലകളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചു അംഗനവാടികൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവയ്ക്ക് അവധി നൽകി

മരിച്ചവരുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സഹായധനമായി നൽകുമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു കൂടാതെ ര ുലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം സംസ്ഥാന ഗവൺമെന്റും പ്രഖ്യാപിച്ചിട്ടു ് കേന്ദ്ര ദുരന്തനിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് രക്ഷപ്രവർത്തനങ്ങൾ നടന്നത്

കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ ജീവനക്കാർക്ക് ഈ തീരുമാനം പ്രചോദനം നൽകുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

തുഷാർ മേഹ്ത്തയെ നിയമിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവായി ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറലായി പ്രവർത്തിച്ചുവരികയാണ് ശ്രീ

രഞ്ജിത്ത് കുമാർ പദവി രാജിവച്ച് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്

പരിസ്ഥിതിസഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ഫിൻലൻഡും തമ്മി ലുള്ള സഹകരണ ധാരണാപത്രത്തിനും കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി പരിസ്ഥിതി സംരക്ഷണം പ്രകൃതി വിഭവങ്ങളു ടെ വിനിമയം എന്നീ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർ ഘകാല സഹകരണം സ്ഥാപിക്കാനും ഉതകുന്നതാണ് ഈ കരാർ വിനോദസഞ്ചാര രംഗത്തെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും റൊമേനിയയും തമ്മിൽ ഒപ്പു വച്ച ധാരണാപത്രത്തിന് മുൻകാല പ്രാബല്യത്തോടെ അംഗീകാരം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി

സമൂഹമാധ്യമങ്ങളിൽ ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നടത്തിയ ഫെയ്സ്ബുക്ക് ലൈവിലാണ് അദ്ദേഹം ഇക്കാരൃം ആഹാനം ചെയ്തത് ഇതിനുള്ള പരിശ്രമങ്ങളിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നിർണായക പങ്കു െന്നും ശ്രീ

മാധ്യമം എന്നത് മുൻകാലങ്ങളിൽ ചിലരുടെ കൈകളിൽ ഒതുങ്ങിനിന്നെങ്കിൽ ഇന്ന് അത് എല്ലാവർക്കും പ്രാപ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ മന്ത്രി കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകി അപകടത്തെപ്പറ്റി അന്വേഷിക്കാൻ ഉന്നതതല സംഘത്തിനും രൂപം നൽകിയിട്ടു ് പ്ലാന്റിന്റെ സിഇഒ യെ സസ്പെന്റ് ചെയ്തു

കാശ്മീരി തീവ്രവാദി ഗ്രൂപ്പായ അൻസർ ഗസ്മത് അൽ ഹിന്ദിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചതായി പോലീസ് പറഞ്ഞു

ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ആയുധങ്ങളും ക െടുത്തിട്ടു ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തീവ്രവാദം വ്യാപിപ്പിക്കാനുള്ള പാകിസ്ഥാൻ രഹസ്യ സംഘടനയുടെ ശ്രമമാണ് അറസ്റ്റിലൂടെ പുറത്തു വന്നതെന്ന് പോലീസ് അറിയിച്ചു

കഴിഞ്ഞവർഷമാണ് ഇന്ത്യ എസ്

ഇതിനുശേഷമുള്ള ര ാമത് കൌൺസിൽ യോഗമാണ് ഇത്

ഷങ്കായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗരാജ്യങ്ങളുമായും നി്രീക്ഷക രാജ്യങ്ങളുമായും ആശയ വിനിമയം നടത്താൻ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന അവസരമാണ് ഇത് അഫ്ഗാനിസ്ഥാൻ ബലാറസ് ഇറാൻ മംഗോളിയ എന്നിവയാണ് നിരീക്ഷക രാജ്യങ്ങൾ

നവരാത്രിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദമോദി എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേർന്നു